സ്ഫോടനം നടത്താനുള്ള ഭീകരരുടെ ശ്രമം സുരക്ഷാസേന വിഫലമാക്കി

ഏറ്റുമുട്ടലിൽ മൂന്ന് ന്ക്ക്സ്ലേറ്റുകൾ കൊല്ലപ്പെട്ടു

വൻ വൃവസായ സ്ഥാപനങ്ങളടക്കം മുപ്പതോളം സംഘങ്ങൾ ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് ഡോ

കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധൃതയുള്ളതിനാൽ ഇന്ന് അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് മീൻപിടുത്തത്തിന് നിരോധനം

തെക്കൻ കാശ്മീരിലെ രാജ്ട്പോരയിൽ അയൻഗുണ്ട് പ്രദേശത്താണ് സംഭവം

സ്ഫോടന പ്രശ്മർ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം രഹസ്യവിവരം കിട്ടിയിരു്ക്ന്ന്നും അദ്ദേഹം വെളിപ്പെടുത്തി

ഒരാളെ പരിക്കുകളോടെ പിടികൂടിയിട്ടുണ്ട്

ഝാർഖണ്ഡിലെ വെസ്റ്റ് സിങ്ഭും ജില്ലയിലെ മൻമാരു വനമേഖലയിലാണ് സംഭവം

എൽ എഫ്

സോണൽ കമാൻഡർ സച്ചിത് സിങ്ങുൾപ്പെടെ രണ്ട് മാവോയിസ്റ്റുകളെ സിംദേഗ പൊലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു

തെലങ്കാന സ്വദേശി അഞ്ജയ്യയാണ് തിരുവനന്തപുരത്ത് മരണമടഞ്ഞത്

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത വോയ്സ് രാജ്യത്ത് കോവിഡ് രോഗികൾ ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയാണ് നടന്നതെന്നതിനാൽ ചർച്ചയ്ക്ക് പ്രസക്തിയേറെയാണ് മുംബൈ ചെന്നൈ ഡൽഹി അഹമ്മദാബാദ് താനെ പൂനെ ഹൈദ്രബാദ് കൊൽക്കത്ത ഇൻഡോർ ജയ്പൂർ ജോധ്പൂർ ചെങ്കൽപേട്ട് തിരുവള്ളൂർ നഗരങ്ങളിലാണ് രാജ്യത്തിലെ രോഗികളുമുള്ളത്

സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും ചർച്ചയിൽ പങ്കെടുത്തു കോവിഡിനെ നേരിടാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ മാർഗ്ഗു നിർദ്ദേശങ്ങൾ പുറത്തിറിക്കിയിരുന്നു കോവിഡ് രോഗികൾ ഉള്ള സ്ഥലം സമ്പർക്കം തുടങ്ങിയവ അടിസ്ഥാനപ്പെടുത്തിയാകണം കണ്ടെയിൻമെന്റ് സോൺ നിശ്ചയിക്കേണ്ടതെന്ന് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട് പാർപ്പിട മേഖല മുനിസിപ്പൽ വാർഡുകൾ പൊലിസ് സ്റ്റേഷൻ പരിധി നഗരം എന്നിവ ് കണ്ടെയിൻമെന്റ് സോണിലാകണോ എന്ന് മുൻസിപ്പൽ കോർപ്പറേഷനുകൾക്ക് തീരുമാനിക്കാം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എം ആർ നൽകിയിട്ടുണ്ട്

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിനുള്ള നടപടികൾ ചർച്ച് ചെയ്തു കോവിഡ് പൊട്ടിപുറപ്പെട്ടശേഷം റിസർവ് ബാങ്ക് ഗവർണറും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും പങ്കെടുക്കുന്ന സാമ്പത്തിക സ്ഥിരത വികസന സമിതിയുടെ ആദ്യയോഗമായിരുന്നു ഇത്

തദ്ദേശീയമായി വികസിപ്പിക്കുന്നത് മറ്റ് കമ്പനികളുമായി സഹകരിച്ച് നിർമ്മിക്കുന്നത് മുൻനിര കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെ മൂന്ന് രീതികളിലാണ് വാക്സിൻ വികസനശ്രമം നടക്കുന്നത്

നാളെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ മറ്റൊരു് ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു

അലോപ്പതി മരുന്ന് പരീക്ഷണത്തിന് സമാനമായുള്ള പ്രോട്ടോക്കോൾ പാലിച്ചാകും ആയുർവേദ മരുന്നിന്റെ ക്ലിനിക്കൽ പരീക്ഷണമെന്ന് രാഷ്ട്രീയ കാമനേധു ആയോഗ് ചെയർമാൻ ഡോ

പഞ്ചഗവൃത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഇന്ത്യയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അറിവുണ്ടായിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

നാവിക ഓഫീസറായ കമാൻഡർ കാർല മോണ്ടിറോ ഡി കാസ്ട്രോയാണ് ബ്രസിലിൽ നിന്ന് അവാർഡ് കരസ്ഥമാക്കിയത്